ത സമ്പർക്കത്തിലൂടെ അഞ്ചുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ സ്രവ പരിശോധന ഇന്ന് ആരംഭിക്കും ത സംസ്ഥാനത്ത് ഞാറ്റുവേല ചന്തകൾക്ക് ഇന്ന് തുടക്കം

സി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ സംസ്കാരം നാളെ പയ്യാമ്പലത്ത്

ദുദ ലോകത്ത് ഇന്നലെ ഒറ്റ ദിവസത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തു

ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്

കാസർകോട്ട് ആറുപേർക്കും എറണാകുളത്ത് അഞ്ച് പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

ഇടുക്കിയിൽ ഒരു ആരോഗ്യപ്രവർത്തകയ്ക്കും രോഗബാധയുണ്ടായി

ഏഴ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി

രുമ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് തൃശൂർ ജില്ലയിലാണ് വിശദാംശങ്ങൾ നൽകുന്നത് ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്

കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട്

മണക്കാട് ആറ്റുകാൽ കാലടി വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് മേഖലയായി പ്രഖ്യാപിച്ച അഞ്ച് പ്രദേശങ്ങളിലാണ് സ്രവ പരിശോധന ആരംഭിക്കുന്നത് കോവിഡ് ബാധിച്ച ഓട്ടോ ഡ്രൈവറുടെ സമ്പർക്ക പട്ടിക പൂർത്തീകരിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് രുമ ചാർട്ടേഡ് വിമാനങ്ങളിലെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ തീരുമാനം ചോദ്യം ചെയ്യുന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും

കെ മുനീറിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് എം എൽ എമാർ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദേശ കോവിഡ് ബാധിതനായ പൊലീസ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ എത്തിയ സാഹചര്യത്തിൽ കോടതി അടയ്ക്കേണ്ടതില്ലെന്ന് അധികൃതർ തീരുമാനിച്ചു

അഭിഭാഷകരുടെ അസാന്നിധ്യത്തിൽ കേസുകൾ പരിഗണിക്കില്ല

രുമ പൊതുസ്ഥലങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പൊലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി ബസ് സ്റ്റോപ്പുകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ജനങ്ങൾ സാമൂഹ്യ അകലം പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെത്തുടർന്നാണ് നിർദ്ദേശം എല്ലാ നഗരങ്ങളിലും ഇതിനായി പട്രോളിംഗ് വാഹനങ്ങൾ ഏർപ്പെടുത്തും

എറണാകുളം ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് കമ്യൂണിറ്റി ഹാളിൽ മന്ത്രി വി എസ് സുനിൽകുമാർ ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും

കൃഷിവകുപ്പ് ഫാമുകൾ കാർഷിക സർവ്വകലാശാല വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കൃഷി വിജ്ഞാൻ കേന്ദ്ര എന്നിവ ഉല്പാദിപ്പിക്കുന്ന വിത്തുകളും നടീൽ വസ്തുക്കളും ഞാറ്റുവേല ചന്തകളിൽ ലഭ്യമായിരിക്കും കോഴിക്കോട് വേങ്ങേരി കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ വൈകിട്ട് മന്ത്രി ടി പി രാമകൃഷ്ണൻ ജില്ലാതല ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്യും പരമ്പരാഗത വിത്തിനങ്ങളുടെ വില്പന ഒരുക്കിയിട്ടുണ്ട്

സി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കണ്ണൂരിൽ അന്തരിച്ചു

ഹൃദയാഘാതത്തെത്തുടർന്ന് ഇന്നലെ വൈകിട്ട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

സി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ ഇ

ജയരാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി ടി പി രാമകൃഷ്ണൻ കെ

സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു

സംസ്കാരം നാളെ പയ്യാമ്പലത്ത് നടത്തും

സി മൊയ്തീൻ തൃശൂരിൽ അറിയിച്ചു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മുഖ്യമന്ത്രിയും സി

എം നേതാക്കളും നടത്തുന്ന അധിക്ഷേപം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതേ ഭാഷയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് മുന്നറിയിപ്പ് നൽകി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിപ്പോയ സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ആലങ്കാരികമായി കുറ്റപ്പെടുത്തിയത് ഇതിൽ അശ്ലീലമോ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പദപ്രയോഗമോ ഇല്ലെന്ന് കൊടിക്കുന്നിൽ പ്രസ്താവനയിൽ അറിയിച്ചു രമ തീരദേശത്ത് കടൽക്ഷോഭംമൂലം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ രോഗം ബാധിച്ചവരെ സ്കൂൾ ക്യാമ്പുകളിലേക്ക് മാറ്റില്ലെന്ന് മന്ത്രി എ

തപസ്യ സംസ്ഥാന പ്രസിഡന്റ് മാടമ്പ് കുഞ്ഞിക്കുട്ടനും പരിസ്ഥിതി പ്രവർത്തകൻ പ്ലാവ് ജയനും ചേർന്ന് ഇല്ലപ്പറമ്പിൽ പ്ലാവ് തൈ നട്ടാണ് വനപർവ്വത്തിന് തുടക്കം കുറിക്കുന്നത്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് രുമ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാവിലെ മുതൽ കനത്ത മഴ തുടരുകയാണ്